ഐ എന്നിവ ഉപയോട്ട്ഗിച്ചുള്ള ഇടപാടുകൾക്ക് വ്യാപാരികൾ നൽകുന്ന ഫീസ് ജനുവരി മുതൽ ഒഴിവാക്കും

എം

മുഖ്യമന്ത്രിയായി ഇന്ന് സ്ഥത്യപ്രതിജ്ഞ ചെയ്യും

ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി

ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭിക്കും ആകാശവാണിയുടെയും ദൂരദർശന്റെയുക്കു പ്രധാന മന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താവിതരണ പ്രക്ഷേപ്പ്ണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം ലഭ്യമാകും ഹിന്ദി പ്രക്ഷേപണ്ട് പ്രകൃഷിഞ്ഞാൽ ഉടൻ തന്നെ ആകാശവാണിയിൽ മലയാളത്തിൽ മുൻ കി ബാത്തിന്റെ പ്രക്ഷേപണം ഉണ്ടായിരിക്കും പുനഃപ്രക്ഷേപ്പണും രാത്രി എട്ടിന് മൻ കി ബാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട വിഷ്യിങ്ങളാണ് പ്രധാനമന്ത്രി ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്

ഖാദി മേഖലയുടെ വളർച്ചയ്ക്കും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഉന്നമനവും ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ആവശ്യം

വൃക്തികൾക്ക് പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ് ഇടമാണ് മൈ ജി

ഡിജിറ്റൽ രീതിയിൽ ഇടപാടുകാരിൽ നിന്ന് പണം സ്വീകരിക്കുന്ന വ്യാപാരികൾ ബാങ്കിന് നൽകുന്ന ചെലവു തുകയായ ഫീസാണ് മർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് ചീഫ് എക്സിക്യുട്ടീവുമാരുടെ യോഗത്തിലാണ് ധനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്

എം

ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ന്യൂഡൽഹിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരം സമ്മാനിക്കും

അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി അരുൺ ജയ്റ്റ്ലിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

രാഷ്ട്ര സേവനത്തിനായി ഉത്തമ മാതൃകയായി പ്രവർത്തിക്കാ്ൻ രാഷ്ട്രീയ നേതാക്കളോട് ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു ബാങ്കിംഗ് മേഖലയുടെ സുസ്ഥിരതയ്ക്കായി അരുൺ ജെയ്റ്റ്ലി ്ചെയ്ത സേവനങ്ങൾ വിലപ്പെട്ടതാണ് നിർജീവ ആസ്തി സൃഷ്ടിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ജെയ്റ്റ്ലിയുടെ കാലത്ത് കൊണ്ടുവന്ന പാപ്പർ നിയമസംഹിത വിപ്ലവകരമായ നടപടിയാണെന്ന് ശ്രീ

ലോക്സഭാ സ്പീക്കർ ഓംബിർല രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു

രാജ്യത്തെ ഒരു പൌരനും നിയമത്തെ ഭയപ്പെടേണ്ടതില്ലില്ലെന്ന് അദ്ദേഹം റാഞ്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പീഡിത ജനവിഭാഗത്തിന് പൌരത്വം നൽകാനാണ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു

വീടുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ തുക ധനവകുപ്പ് ഉടൻ അനുവദിക്കും

ഭൂരഹിതരുട് ഭവനരഹിതരുമായവർക്കുള്ള മൂന്നാംഘട്ട പദ്ധതിയിൽ ഫ്ളാറ്റ് പ്ര സ്മുച്ചയമാണ് പണിയുന്നത് പ്രീ ഫാബ്രിക്കേഷൻ സാങ്കേതിക്വിദ്ദ്യ ഉപയോഗിച്ചാണ് ഫ്ളാറ്റുകൾ പണിയുന്നത്

ബാക്കിയുള്ള സ്ഥലങ്ങൾ ജനുവരിയോട്ട് കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

പ്രാചീന ഇന്ത്യ മധ്യകാല ഇന്ത്യ ആധുനിക ഇന്ത്യ വർത്തമാനകാല ഇന്ത്യ പുരാവസ്തുവിജ്ഞാനീയം ഇന്ത്യക്കുപുറത്തുള്ള രാജ്യങ്ങൾ എന്നിങ്ങനെ ആറു സെഷനുകളിലായാണ് മൂന്നു ദിവസങ്ങളിൽ പ്രബന്ധാവതരണം നടക്കുന്നത് ഇന്ത്യൻ സ്ത്രീചരിത്രത്തിന്റെ പുനർരചന എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഇന്ന് പൂർത്തിയാവും

സി മേരികോം ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വനിതകൾ ബോക്സിംഗിൽ യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ സംഘത്തിൽ ഇടം പിടിച്ചു

ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിലായിരുന്നു

നിയമ വിരുദ്ധമായി സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കരുതെന്ന് അഡീഷണൽ ഡി

സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്ന് സംസ്ഥാന ഗവൺമെന്റും പൊലീസും വ്യക്തമാക്കിയിട്ടുണ്ട് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭ സമയത്ത് സമൂഹ മാധ്യമങ്ങളെ ക്രയാത്മകമായി ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾ പൊലീസിന് എല്ലാ സഹായവും നൽകിയിരുന്നതായി എ ഡി ജി പി പറഞ്ഞു

ജമ്മുവിലും ക്കാശ്മീരിലും ലഡാക്കിലും ജനജീവിതം അതിശൈത്യത്തെ തുടർപ്പ് താറുമാറായി ഒഡീഷ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ വിദർഭ മേഖലകൾ എന്നിവയും അതിശൈത്യത്തിന്റെ പിടിയിലാണ്